ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന് പ്രധാനമന്ത്രി സൌരോർജ്ജ മേഖില്യിൽ വൻ ശക്തിയായി മാറാനുള്ള പ്രയാണത്തിലാണ് ഇന്ത്യയെന്നും നരേന്ദ്രമോദി

സഹകരണത്തിനും പങ്കാളിത്തത്തിനുമുളള കരാറിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം

ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭയുടെ ശുപാർശ

ഓസ്ട്രേലിയൻ ഓപ്പണിൽ റാഫേൽ നദാലിനെ അട്ടിമറിച്ച് സ്റ്റെഫാനോസ് സിറ്റ് സിപാസ് സെമിയിൽ

എസ് എല്ലിൽ ഗോവ ഒഡീഷ പോരാട്ടം

രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ പരിശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി തമിഴ്നാട്ടിലെ രാമദാസപുരം തൂത്തുകുടി പ്രകൃതി വതാക പൈപ്പ്ലൈൻ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സൌരോർജ്ജ മേഖലയിൽ വൻ ശക്തിയായി മാറാനുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ

നാഗപട്ടണത്തെ കാവേരി നദീതട എണ്ണ ശുദ്ധീകരണ ശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ടി മേഖല സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആന്റ് സർവ്വീസ് കമ്പനീസിന്റെ നാസ്കോമിന്റെ ലീഡൽഷിപ്പ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രഗ്ലാനമന്ത്രി

വോയ്സ് വികസനത്തിനും വളർച്ചയ്ക്കും രാജ്യം വളരെയധികം ആഗ്രഹിക്കുന്നതായും ലോകമ്മേറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയെ നോക്കി കാണുന്നതെന്നുറ്റ പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് കാലത്ത് രാജ്യത്തിന്റെ സ്ഉക്കേതികവിദ്യ ശക്തി തെളിയിച്ചെന്ന് മാത്രമല്ല സ്വയം രൂപ്പപ്പെടുത്തുകയും ചെയ്തു ലോകം നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ രാജ്യത്തെ ഐ ടി മേഖല ആർജ്ജവത്തോടെയും പ്രതിബദ്ധതയോടെയും സമയബന്ധിതമായും പദ്ധതികൾ പൂർത്തീകരിച്ചു വസൂരി പോലുള്ള രോഗങ്ങളുടെ കാലത്ത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ നിലവിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുകയാണ് തടസ്റ്റങ്ങൾ ഭാവി നേതൃത്വത്തെ വളരാൻ അനുവദിക്കില്ലെന്ന് സർക്കാരിന് തികഞ്ഞ ബോധ്യമുണ്ട് സാങ്കേതിക മേഖലയിലെ അനാവശ്യ നിയന്ത്രണങ്ങൾ മാറ്റുന്നതിന് സർക്കാർ നിരന്തരം ശ്രമിച്ചുവരികയാണ്

കറൻസിയിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇപ്പോൾ കറൻസി രഹിത സമ്പദ്വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഉദാരമായി ലഭ്യമാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾക്കും അനുബന്ധ മേഖലകൾക്കും ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയിലെ ടെലിക്കോം നെറ്റ്വർക്കിംഗ് ഉല്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനും ആഭ്യന്തര ഉല്പാദനം വർദ്ധിപ്പിക്കാനും നടപടി സഹായകരമാകും

ഇത്തരം നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു

എല്ലാ ജില്ലകളിലും നിയമം നടപ്പാക്കുന്ന ഏജൻസികളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ ജില്ല മജിസ്ട്രേറ്റുമാർക്കും അസിസ്റ്റന്റ ജില്ല മജിസ്ട്രേറ്റുമാർക്കും ഭേദഗതിയിലൂടെ അധികാരം ലഭിക്കും

ശിശുക്ഷേമ സമിതി അംഗങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങളും പുതുക്കിയ ഭേദഗതി അനുസരിച്ച് വൃത്യാസപ്പെടുമെന്ന് വാർത്തസമ്മേളനത്തിൽ സംബന്ധിച്ച കേന്ദ്രമന്ത്രി ് സ്മൃതി ഇറാനി അറിയിച്ചു മൌറീഷ്യസുമായി സമഗ്ര സാമ്പത്തിക സഹകരണം ഉറപ്പ് വരുത്തുന്നതിനും സ്വതന്ത വ്യാപാരം ലക്ഷ്യം വയ്ക്കുന്നതുമായ കരാറിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രവുമായി ഇത് ആദ്യമായാണ് ഇന്ത്യ സമഗ്ര വ്യാപാര കരാർ ഒപ്പ് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് വിധി പ്രസ്താവത്തിൽ വൃക്തമാക്കി

കേരള മെഡിക്കൽ പ്രാക്റ്റീഷ്ണേഴ്സ് ആക്ട് നടപ്പാക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും ഗവർണറോട് ് ശുപാർശ ചെയ്യാനും ഇന്ന് ചേർന്ന മന്ത്രിസഭ തീരുമാനമെടുത്തു

വിജയൻ പറഞ്ഞു

ലോക ഒന്നാം നമ്പർ താരം ആഷ്ലി ബാർട്ടിയെ അട്ടിമറിച്ച് ചെക്ക് താരം കരോളിന മഷോവ ഓസ്ട്രേലിയൻ ഓപ്പൺ സെമിയിൽ എത്തി നിർണ്ണായകമായ രണ്ടും മൂന്നും ് സെറ്റുകൾ സ്വന്തമാക്കിയാണ് മഷോവ സെമിയിലെത്തിയത്

വനിതാ സിംഗിൾസ് സെമി പോരാട്ടത്തിൽ അമേരിക്കൻ താരം സെറീന വില്ല്യംസ് ജപ്പാന്റെ നവോമി ഒസാക്കയെ നാളെ നേരിടും